ലോകം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാൻ ഹിന്ദു ദർശനങ്ങൾക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ദ്വിദിന ബി ജെ

കേരളത്തിൽ പ്രളയത്തിൽ തകർന്ന ആരോഗൃകേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ സഹായം നൽകുമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ജെ

ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് സെറീന വിലൃംസ് ജപ്പാന്റെ നവോമി ഒസാക്കോയെ നേരിടും

മാനവരാശിയുടെ ചരിത്രിത്തിൽ ഏറ്റവും പഴക്കമേറിയ വിശ്വാസ ധാരയ്ടാണ് ഹിന്ദുമതമെന്ന് രണ്ടാം ലോക ഹിന്ദുക്കോൺഗ്രസിനുള്ള സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഫിന്ദു ദർശനങ്ങൾ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് സാ്ങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ ഉപയോഗപ്പെടും പുരാണങ്ങളും പുരാണ പുരുഷൻമാരുടെ വീരേതിഹാസങ്ങളും യുവതലമുറയ്ക്ക് പകർന്നു നൽകാനും പുതിയ തലമുറയ്ക്ക് കൈമാറാനും സാങ്കേതി വിദ്യയ്ക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ അമേരിക്കയിലെ ചിക്കാഗോയിൽ ആരംഭിച്ച ലോക ഹിന്ദു സമ്മേളനത്തിൽ പ്രമുഖ ഇന്ത്യൻ അമേരിക്കൻ ഭാരത് ബറായി പ്രധാനമന്ത്രിയുടെ സന്ദേശം വായിച്ചു

ഇന്ത്യയുടെ പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ലോകത്തിന് തന്നെ മുതൽക്കൂട്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

നാളെ ചിക്കായോഗിൽ രണ്ടാം അന്താരാഷ്ട്ര ഹിന്ദുസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രത്യേക സമ്മേളനത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും

അമേരിക്കയിലെ ചിക്കായോഗിൽ നടക്കുന്ന ലോക്മത ്സമ്മേളനത്തിൽ പ്രമുഖ ഹിന്ദുമത നേതാക്കൾ പങ്കെട്ടുക്കുന്നു

ഇന്നലെ ന്യൂ ഡൽഹിയിൽ നടന്ന ഇന്ത്യാ യു എസ്

തുടർ ചർച്ചകൾക്കായി യു എസ് വ്യാപാര പ്രതിനിധി മാർക്ക് ലിൻസ്കോട്ടും ഡെപ്യൂട്ടി ജെഫ്രി ഡി ഗെരീഷും അടുത്ത ആഴ്ച ഇന്ത്യ സന്ദർശിക്കുമെന്ന് കരുതുന്നു

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യും ഇന്നലെ ന്യൂഡൽഹിയിൽ ഇറാനിയൻ മൃത്തീ അബ്ബാസ് അഹമ്മദ് അഖൌജി മന്ത്രി സുരേഷ് പ്രഭുവുമായി ക്ടൂടിക്കാഴ്ച നടത്തി

പ്രതിരോധം സാങ്കേതികവിദ്യ നിർമ്മാണം വാണിജ്യം ഭീകരതപോലുള്ള ബഹുസ്വര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ചെക്ക് റിപ്പബ്ലിക്കുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ഇന്നലെ രാത്രി പ്രേഗിൽ നടന്ന ഇന്ത്യാ ചെക്ക് ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ചെക്ക് കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പാദന മേഖലയിൽ വൻ സാധ്യതകളാണ് നിലവിലുള്ളതെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഇന്ത്യൻ കമ്പനികളും ചെക്ക് കമ്പനികളും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നാലാം വ്യവസായ വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ കൊയ്യാൻ കൈകോർക്കണമെന്ന് ശ്രീ

ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് അഞ്ച് ധാരണാ പത്രങ്ങളിൽ ഒപ്പു വയ്ക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഇന്ന് ചാൾസ് സർവ്വകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യും ഇന്റർനാഷണൽ ലേസർ റിസർച്ച് സെന്റർ അദ്ദേഹം സന്ദർശിക്കും

ദീർഘകാല ഹ്രസ്വകാല അട്ടിന്തർം എന്നിങ്ങനെ തരം തിരിച്ച് ആരോഗ്യരംഗത്തെ പുന്നർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് കേന്ദ്ര ആർോഗ്യമന്ത്രി ജെ

സംസ്ഥാനത്തെ പ്രളയക്കെടുതികൾ കേന്ദ്രമന്ത്രി ഇന്നലെ അവലോകനം ചെയ്തു

ആരോഗൃവകുപ്പിനുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ആരോഗ്യരംഗത്തെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആരോഗ്യ മിഷൻ വിദഗ്ദ്ധ സംഘം സംസ്ഥാനം സന്ദർശിക്കുമെന്നും മന്ത്രി അറിയിച്ചു

ശൈലജയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥസംഘം ഇതു സംബന്ധിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി

സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പ്രളയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന ആരോഗ്യവ്വകുപ്പ് വഹിച്ച പങ്കിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു നിപ രോഗം എന്ന് പോലെ പ്രളയത്തെ തുടർന്നുള്ള ആരോഗ്യപ്രശ്നങ്ങളൂം കേരളം മാതൃകാപരമായി കൈകാര്യം ചെയ്തതായി മന്ത്രി പൂറ്റഞ്ഞു ദേശീയ ആരോഗ്യദൌത്യത്തിനു കീഴിൽ താൽക്കാലികമായി ഡോക്ടർമാരെയും മറ്റ് ജീവനക്കാരെയും കൂടുതലായി അനുവദിക്കണമെന്ന ഗവ്ൺമെന്റിന്റെ ആവശ്യവും പരിഗണിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു നെടുമ്പാശ്ശേരിയിൽ നടന്ന അവലോകന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

പാർട്ടി പ്രസിഡന്റ് അമിത് ഷാ അദ്ധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുക്കും മുതിർന്ന പാർട്ടി നേതാക്കളോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ശേഷം യോഗത്തിൽ പങ്കുചേരും അടൽ ബിഹാരി വാജ്പേയ്യുടെ വിയോഗത്തിന് ശേഷം ചേരുന്ന ആദ്യ പാർട്ടി ഉന്നതതല യോഗമാണിത് അടൽജിയുടെ പാത പിന്തുടർന്ന് പാർട്ടി ബഹുദൂരം മുന്നോട്ട് പോകുമെന്ന് യോഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പാർട്ടി വക്താവ് ഷാനവാസ് ഹുസൈൻ പറഞ്ഞു പ്രധാനമന്ത്രിയെ നിരന്തരം അവഹേളിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്ന് ശ്രീ

കോൺഗ്രസ് നേതാവ് നവജോത് സിംഗ് സിദ്ധു അടുത്തിടെ നടത്തിയ പരാമർശം പാർട്ടിയുടേതാണോ ്രഎന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇന്നലെ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് ആദ്യ ഓവറുകളിൽ പിടിമുറുക്കിയെങ്കിലും അവസാന സെഷനിൽ ഇന്ത്യൻ ബൌളർമാർ ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു

ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ഇന്ന് അമേരിക്കയുടെ സെറീന വില്യംസ് ജപ്പാന്റെ നവോമി ഒസാക്കോയെ നേരിടും ആറ് വട്ടം ചാമ്പ്യനായ സെറീന സെമിയിൽ ലാത്ചിയൻ താരം അനസ്താസിയ സ്റ്റെതസോവയെ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ എത്തിയത്

വിദ്യാഭ്യാസത്തിന്റെ പ്രാധാത്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ ഓർമ്മിപ്പിക്കാൻ സാക്ഷരതയുള്ള സമൂഹത്തെ വാർത്തെടുക്കുകയുമാണ് ലക്ഷ്യം

ലോകത്തുള്ള നിരക്ഷരരിൽ മൂന്നിൽ രണ്ടുഭാഗവും വനിതകൾ ആണെന്നുള്ളതും നിരക്ഷരതയുടെ ദയനീയ ചിത്രമാണ്

ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാക്ഷരതാ നിരക്കിൽ അഭിമാനാർഹമായ നേട്ടം കേരളം കൈവരിച്ചിട്ടുണ്ട്

അക്ഷരം അറിവാണ് അത് ശക്തിയാണ് അക്ഷരജ്ഞാനം നേടാൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ലെന്ന സന്ദേശം നൽകുകയാണ് ഓരോ സാക്ഷരതാ ദിനങ്ങളും